നടക്കും

കേരളത്തിൽ ബുധനാഴ്ചവരെ മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്

രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന എൽപിജി ആവശ്യം നിറവേറ്റാൻ ബോട്ട്ലിങ്ങ് പ്താന്റുകൾ സഹായകരമാവും പ്രതിദിനം എൺപതിനായിരം ് സിലിണ്ടറുകൾ നിറയ്ക്കാൻ ശേഷിയുള്ളവയാണ് ഈ രണ്ട് എൽ

ജി പ്താന്റുകൾ

കോവിഡിനെ തുടർന്ന് മുൻപ് രണ്ട് തവണ പരീക്ഷ മാറ്റി വച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി എം ആർ അറിയിച്ചു

കോവിഡ് ഭേദമായ ശേഷവും ക്ഷീണം ശരീര വേദന ചുമ തൊണ്ട വേദന ശ്വാസ തടസ്സം എന്നിവ അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് മാർഗനിർദേശങ്ങൾ പുറത്തിറക്കിയത് കോവിഡ് ഭേദമായവർ തുടർന്നും മാസ്കുകൾ ധരിയ്ക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യണമെന്ന് നിർദേശത്തിൽ പറയുന്നു ചൂടു വെള്ളം കുടിയ്ക്കുകയും പ്രതിരോധ ശേഷി കൂട്ടാനുള്ള ആയുഷ് മരുന്നുകൾ കഴിക്കുകയും ചെയ്യാവുന്നതാണ് പ്രഭാത സവാരി ഉൾപ്പെടെ മിതമായ തരത്തിലുള്ള വ്യായാമങ്ങളും ആവാം

എളുപ്പത്തിൽ ദഹിക്കുന്ന തരം പോഷകാഹാരം ആകണം കഴിക്കേണ്ടത്

ചികിത്സയിലുള്ളത്

ബ്രസീൽ പെറു റഷ്യ എന്നിവിടങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ്

ഒരാളിൽ വിപരീത ഫലം കണ്ടതിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയ പരീക്ഷണങ്ങൾ സുരക്ഷിതമാണെന്ന് മെഡിസിൻസ് ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പുനരാരംഭിച്ചത്

എം റയിൻബോ എന്നീ ചാനലുകളിലൂടെ കേൾക്കാം

വിമാനത്താവളത്തിന്റെ നിർമാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്

വിവിധ ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു

നാളെ ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രത നിർദ്ദേശമുണ്ട്

സമ്പർക്ക രോഗ വ്യാപനത്തിന് യു ഡി എഫ് ബി ജെ

കോവിഡ് മരണങ്ങൾ കുറയ്ക്കു ന്നതും ക്ലിനിക്കൽ പ്രോട്ടോകോളുകൾ മികച്ച ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നിവയും കോൺക്ലേവിൽ ചർച്ചയായി രാജ്യത്തെ ആരോഗൃപരിപാലന സംവിധാനങ്ങൾക്ക് കോവിഡ് കടുത്ത വെല്ലുവിളികൾ ഉയർത്തിയെങ്കിലും സർക്കാരിനെയും സ്ഥാപകർ സ്ഥാപനങ്ങളുടെയും ഇടപെടൽ ഇത് കുറയ്ക്കാൻ സഹായിച്ചതായി യോഗം വിലയിരുത്തി

സംസ്ഥാനങ്ങളിലും വിവിധ ജില്ലകളിലും കോവിഡ് നിയന്ത്രിക്കാൻ കൈക്കൊള്ളുന്ന നടപടികൾ യോഗം വിലയിരുത്തി

പുരുഷ ഫൈനലിൽ ഇന്ന് രാത്രി ജർമ്മനിയുടെ അലക്സാണ്ടർ സവറേവ് ഓസ്ട്രിയൻ താരും ഡ്രൊമീനിക് തീമുമായി ഏറ്റുമുട്ടും